വാരണാസിയിൽ പത്രിക തള്ളിയതിനെതിള്ളര മുൻ ബി എസ് എഫ് ജവാൻ നൽകിയ ഹർജി സുപ്രീംക്യോടതി തള്ളി തൃശൂർപൂരം ഉൾപ്പെടെ ഉത്സവങ്ങൾക്ക് മറ്റന്നാൾ മുതൽ ആനകളെ നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു ആന ഉടമകളുമായി വൈകിട്ട് തിരുവനന്തപുരത്ത് ചർച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് വിദേശപൌരത്വ മുണ്ടെന്ന് ആരോപിച്ച് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലാന്റ് സിലെത്തി പൊലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റിൽ ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ ഇന്നു തന്നെ നടപടിയുണ്ടാവു മെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസ റുടെ നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താകുറിപ്പിൽ അറിയിച്ചു സംഭ വത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുഖ്യ തെരഞ്ഞെ ടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദേശം നൽകിയിരുന്നു വാട്ട്സ്ആപ്പിൽ പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് പരാമർശം നടത്തി പ്രചരിപ്പിച്ച പൊലീസ് കമാന്റോ വൈശാഖിനെതിരെ നട പടി എടുക്കാനും മീണ ആവശ്യപ്പെട്ടിരുന്നു മറ്റ് നാല് പൊലീസു കാർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബന്ധപ്പെട്ട ചട്ടങ്ങളും ഗവ ജീവനക്കാരുടെ സർവീസ് ചട്ടപ്രകാരവും കേസെടുക്കാനാണ് നിർദേശം വാരാണസിയിൽ പത്രിക തളളിയതിനെതിരെ മുൻ ബിഎസ് എഫ് ജവാൻ തേജ്ബഹാദൂർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി മഹാസഖ്യം സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക സൈന്യ ത്തിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം വ്യക്തമാക്കിയിട്ടില്ലെന്ന് കാണി ച്ചാണ് തള്ളിയത് ഇതിനെതിരെ തേജ് ബഹാദൂർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിന്റെ പ്രസ്യ പ്രചാ രണം നാളെ അവസാനിക്കും

തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവങ്ങൾക്ക് മറ്റന്നാൾ മുതൽ ആന കളെ വിട്ടു നൽകില്ലെന്ന ആന ഉടമകളുടെ നിലപാടിൽ തർക്കം പരിഹരിക്കാൻ മുന്ത്രി കുടകംപള്ളി സുരേന്ദ്രൻ ഉടമകളുമായി തിരു വനന്തപുരത്ത് ഇന്ന് ചർച്ച നടത്തും വൈകിട്ട് നടക്കുന്ന ചർച്ച യിൽ മന്ത്രി വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് എലഫെന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു തെച്ചി ക്കോട്ട്കാവ് രാമചന്ദ്രൻ എന്ന ആനയെ രണ്ട് മണിക്കൂർ നേരം വടക്കുംനാഥ ക്ഷേത്രത്തിൽ തെക്കെഗോപുരവാതിൽ തുറക്കാൻ കൊണ്ടുവരാൻ അനുവദിക്കണമെന്നാണ് ആന ഉടമകളുടെ ആവ ശ്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൊമ്പനായ തെച്ചി ക്കോട്ട്കാവ് രാമചന്ദ്രന്റെ യുടെ എഴുന്നള്ളിപ്പ് വിലക്കുമായി ബന്ധ പ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഉടമകൾ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന നിലപാടെടുത്തത്

അതിനിടെ തെച്ചിക്കോട് രാമചന്ദ്രനെ പൂരത്തിന് മുന്നോടിയായ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കും ഒരു കണ്ണിന് കാഴ്ച്ചയില്ലാത്ത ആനയെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത് സുരക്ഷയെ ബാധിക്കു മെന്ന നിലപാട് വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്

പാപ്പാന്മാരല്ലാത്തവർ ആനകളെ കൈകാര്യം ചെയ്യരുതെന്നും അവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ബാഗ്ുകൾ പൂരപ്രദേശത്ത് കൊണ്ടുവരുന്നതും നിരോധിച്ചിട്ടുണ്ട് കുടമാറ്റം നട്ടക്കുന്ന സ്ഥലത്തിനടുത്ത് പാർക്കിംഗിന് നിയ ന്ത്രണം ഏർപ്പെടുത്തും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിന്റെ നൂറു മീറ്റർ പരിധിയിലും നിയന്ത്രണം ഉണ്ടാകുമെന്ന് കലക്ടർ പറഞ്ഞു

തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രന്റെ വിലക്ക് നീക്കി യിട്ടില്ലെന്നും നാളെ ഹൈക്കോടതി വിധിയനുസരിച്ച് മാത്രമേ ഇക്കാ ര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും കലക്ടർ വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് വിദേശപൌരത്വമു ണ്ടെന്ന് ആരോപിച്ച് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി

വിദേശ കമ്പനികളുടെ രേഖകളിൽ ബ്രിട്ടിഷ് പൌരനെന്ന് എഴുതിയിട്ടുണ്ടാകാമെന്നും അതുകൊണ്ട് രാഹുൽ ബ്രിട്ടീഷുകാര നാകുമോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു യുണൈറ്റഡ് ഹിന്ദുഫ്രണ്ട് എന്ന സംഘടനയാണ് തെരഞ്ഞെ ടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്നും വോട്ടർപട്ടികയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കണമെന്നതും ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹർജി നൽകിയത് രാജീവ്ഗാന്ധി വധക്കേസിൽ ഏഴ് കുറ്റവാളികളെ മോചിപ്പി ക്കാൻ തമിഴ്നാട് ഗവ എടുത്ത തീരുമാനത്തിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി ചാവേർ ബോംബ് സ്ഫോടനത്തിൽ രാജീവ്ഗാന്ധിക്കൊപ്പം മരിച്ചവരുടെ ബന്ധുക്കളാണ് തമിഴ്നാട് നടപടി ചോദ്യംചെയ്ത് സുപ്രീംകോടതിയെ സമീപ്പിച്ചത് കുറ്റവാ ളികളുടെ മോചനം പരിഗണിച്ച മുൻഭരണ് ഘടനാബെഞ്ച് കേസിലെ എല്ലാവസ്തുതകളും പരിഗണിച്ചാണ് വിധി പ്രഖ്യാപി ച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻഗോഗൊയ് അധ്യക്ഷനായ ബെഞ്ച് വൃക്തമാക്കി

സുപ്രീംകോടതിയിൽ നാല് ജഡ്ജിമാരെ പുതുതായി നിയമി ക്കാൻ കൊളീജിയം ശ്രുപാർശ് നൽകി

ഗുഹാവത്തി ഹൈക്കോടതി ച്ചീഫ് ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ ജാർഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഭൂഷൻ രാമ കൃഷ്ണഗ്പായ് ഹിമാചൽപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരാക്കാ നാണ് ചീഫ് ജസ്റ്റിസ് അധ്യ ക്ഷനായ കൊളീജിയത്തിന്റെ ശുപാർശ ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണയെയും ജസ്റ്റിസ് അനിരുദ്ധബോ സിനെയും സുപ്രീംകോടതി ജഡ്ജിമാരാക്കണമെന്ന് നേരത്തെ നൽകിയ ശുപാർശ സീനിയോറിറ്റിയും പ്രാദേശിക പ്രാതിനിധ്യവും ഉയർത്തി കേന്ദ്രനിയമമന്ത്രാലയം കഴിഞ്ഞദിവസം നിരസിച്ചിരു ന്നു ഇവരെ ജഡ്ജിമാരാക്കണമെന്ന് വീണ്ടും ശുപാർശചെയ്ത കൊളീജിയം സീനിയോറിറ്റിക്കല്ല മികവിനാണ് മുൻതൂക്കം നൽകേ ണ്ടതെന്ന് വ്യക്തമാക്കി

കേരള തമിഴ്നാട് കർണാടക തീരങ്ങളിൽ ഇന്ന് വൈകീട്ട് അഞ്ചര മുതൽ നാളെ അർദ്ധ രാത്രി വരെ കടൽ പ്രക്ഷുബ്ധമാ വാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

മത്സ്യബന്ധന്യ ്യാനങ്ങൾ കെട്ടി സൂക്ഷിക്കണമെന്നും തീരദേശങ്ങളിൽ വിന്റോദ്യ സഞ്ചാരത്തിനെ ത്തുന്നവർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്തെ ഹയർസെക്കൻറി സ്കൂളുകളിൽ പ്ലസ് വൺ സീറ്റ് വർധിപ്പിക്കുന്ന കാര്യത്തിൽ തെരുഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചശേഷം ഗവ തീരുമാനമെടുക്കുമെന്ന് പൊതുവിദ്യാ ഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ അറിയിച്ചു

യോഗ്യത നേടിയ എല്ലാ പ്പിദ്യാർത്ഥികൾക്കും പഠനാവസരം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ജൂൺ മൂന്നിന് ക്ലാസുകൾ ആരംഭി ക്കും പൂനെയിൽ വസ്ത്ര വ്യാപാരശാലയുടെ ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ച് തൊഴിലാളികൾ മരിച്ചു നിരവധിപേർക്ക് പരിക്കേറ്റു ഉരുളി ദേവാച്ചി ഗ്രാമത്തിലെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്

രണ്ടരമണിക്കൂർ സമയമെടുത്ത് തീ നിയ ന്ത്രണവിധേയമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോപ് പര്യടനത്തിനായി നെതലാൻഡിലെത്തി

ഐ ടി മേഖലയിലെ കൂട്ടായ്മയായ ടിഎൻഒ വിന്റെ പ്രതിനിധി കളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും പ്രളയദുരന്തം നേരി ടുന്നതിന് നെതർലാന്റ് നടപ്പാക്കിയ മാതൃകാപ്രദേശവും മുഖ്യമന്ത്രി സന്ദർശിക്കും നാളെ റോട്ടർഡാം തുറമുഖം വാഗ്നിയർ സർവ്വകലാശാല സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി നെതർലാന്റിലെ മലയാളി കൂട്ടായ്മയു മായും ചർച്ച നടത്തും ജനീവയിൽ തിങ്കളാഴ്ച നടക്കുന്ന ലോക പുനർനിർമാണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും കൊച്ചിയിൽ കേരള പ്രീമിയർ ലീഗ് ്ഫുട്ബോൾ ആദ്യ സെമി യിൽ മറ്റന്നാൾ ഇന്ത്യൻ നേവി എഫ്സി കേരളയെ നേരിടും രണ്ടാം സെമിയിൽ ഞായറാഴ്ച്ച ഗോകുലം കേരള റിസർവ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമുമായി ഏറ്റുമുട്ടും രാത്രിയാത്ര നിരോധന കേസ് അട്ടിമറിക്കാൻ സംസ്ഥാനത്തെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ നിരന്തരം ശ്രമിക്കുന്നതായി നാഷണൽ ഹൈവേ ആന്റ് റെയിൽവേ ആക്ഷൻകമ്മറ്റി ആരോപിച്ചു

സത്യവാങ്മൂലം നൽകാതെ കേസ് മാറ്റിവെപ്പിച്ചതെന്ന് അവർ കൽപ്പ റ്റയിൽ ആരോപിച്ചു ഇതിനുമുമ്പ് സംസ്ഥനതല ഉദ്യോഗ്സ്ഥരുടെ ചര്ച്ചനടന്നപ്പോഴും നിരോധനം തുടരണമെന്ന തരത്തിൽ സമീപനമാണ് ഉന്നതഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും അവർ പറ ഞ്ഞു കുട്ടികളുടെ രാജ്യാന്തര ചലച്ചിത്രമേള നാളെ തിരുവനന്തപുരത്ത് തുടങ്ങും

സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര വികസന കോർപ്പ റേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേള നാളെ മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും

തിരൂരങ്ങാടി സ്വദേശി മുഹ മ്മദ് സാദിഖാണ് റെയിൽവേ പൊലീസിന്റെ പ്രിടിയിലായത് അമൃത രാജ്യറാണി എക്സ്പ്രസുകൾ ഇന്നുമുതൽ രണ്ട് ട്രെയി നുകളായി സർവീസ് ആരംഭിക്കും ഷൊർണ്ടൂർ മുതൽ തിരുവന ന്തപുരം വരേയും തിരിച്ചും ഈ സർവീസുകൾ ഒരു ട്രെയിനായാണ് ഇതുവരെ സർവീസ് നടത്തിയിരുന്ന്ത് ഇന്നു മുതൽ അമൃത എക്സ്പ്രസ് തിരുവനന്തപൂരത്ത് നിന്നും രാജ്യറാണി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ നിന്നും സർവീസ് ആരംഭിക്കും അമൃത എക്സ്പ്ര്യസ് തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് ഷൊർണൂർ സ്റ്റേഷനിൽ കയറാതെയായിരിക്കും സർവീസ് നടത്തു ന്നത് രാജ്യറാണി എക്സ്പ്രസ് ഷൊർണൂരിലെത്തിയ ശേഷം നില മ്പൂരിലേക്ക് പോകും അമൃത് എക്സ്പ്രസ്സ് ഇന്ന് രാത്രി മുതൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ട് നിർത്തും രണ്ടു മിനിറ്റ് നേരത്തേക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് തൃശൂർ പൂരത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാവകുപ്പ് ഹോട്ട ലുകളിലും ബേക്കറികളിലും ശീതളപാനീയ കടകളിലും പരിശോ ധന നടത്തി

അക്കൌണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്ന പരാതിയിൽ കൊല്ലം റൂറൽ പോലീസ് നടപടി ആരംഭിച്ചു അന്വേഷണത്തിനായി റൂറൽ സൈബർ എസ് ഐ യുടെ നേതൃത്വത്തിൽ പ്രത്യേകസംഘം രൂപീകരിച്ചു